കേന്ദ്ര ധനമന്ത്രി നടത്തിയ പ്രഖ്യാപനങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ മികച്ച പ്രതികരണങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ചരക്ക് സേവന നികുതി പിരിവിൽ ഉണ്ടായ ഇടിവിനെ തുടർന്ന് സംസ്ഥാനങ്ങൾക്ക് ഉണ്ടായ നഷ്ടം പരിഹരിക്കാൻ സ്വീകരിച്ച കേന്ദ്ര സർക്കാർ നടപടികളെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനമന്ത്രിമാർ പിന്തുണച്ചിരുന്നു

കടം കടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ മുൻകൈ എടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന മറ്റ് സംസ്ഥാനങ്ങളുമായി സമിതി കൂടുതൽ ചർച്ചകൾ നടത്തുമെന്നും അവർ അറിയിച്ചു സംസ്ഥാനങ്ങൾ കടമെടുക്കുന്ന തുകയും അതിന്റെ മുഴുവൻ പലിശയും നഷ്ട പരിഹാര സെസ്സിൽ നിന്നും തിരിച്ചടയ്ക്കുമെന്നും ധനമന്ത്രി സംസ്ഥദ്ദനങ്ങൾക്ക് ഉറപ്പുനൽകി

കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രിമാരായ വി കെ സിംഗ് വി മുരളീധരൻ വിവിധ ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു

പുതിയ പാതകളുടെ പണി പൂർത്തിയാകുന്നതോടെ സംസ്ഥാനത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനും അന്തർസംസ്ഥാന ഗതാഗതം സുഗമമാക്കാനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്

കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം

രോഗവ്യാപന ശേഷി ഉയർന്ന ഒരു രോഗത്തിൽ ആർജ്ജിത പ്രതിരോധശേഷി കൈവരിക്കാൻ വലിയതോതിലുള്ള പ്രതിരോധമരുന്ന് കുത്തിവെപ്പ് ആവശ്യമാണ്

ന്യൂസ് ഡസ്ക് ആകാശവാണി

സാംസ്കാരിക മന്ത്രി എ

ബിരിയാണി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കനി കുസൃതി മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയായി ഷിനോസ് റഹ്മാൻ ഷജാസ് റഹ്മാൻ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത വാസന്തിയാണ് മികച്ച ചിത്രം

കണ്ടെയ്ൻമെന്റ് സോണുകളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്കും മുൻപ് പരീക്ഷ എഴുതാൻ കഴിയാതിരുന്ന വിദ്യാർത്ഥികൾക്കുമായി നാളെ പരീക്ഷ നടത്താനും കോടതി അനുവാദം നൽകിയ്ടിട്ടുണ്ട്

ന്യുഡൽഹിയിൽ നടന്ന ഇന്ത്യ യു

എൽ ക്രിക്കറ്റിൽ ഇന്ന് സൺ റൈസേഴ്സ് ഹൈദരാബാദും ചെന്നൈ സൂപ്പർ കിങ്സും ഏറ്റുമുട്ടും

ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പരാജയപ്പെടുത്തി

ഭൂപിയിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള് മാർഗ്ഗങ്ങളും സമിതി നിർദ്ദേശിക്കുമെന്ന് മഹാരാഷ്ട്ര വൈദ്യുതി മന്ത്രി നിതിൻ റാവത്ത് അറിയിച്ചു

മോചിതരായ ഇന്ത്യൻ പൌരന്മാരുമായി ടുണീഷ്യയിലെ ഇന്ത്യൻ ഫോൺ സംഭാഷണം നടത്തിയതായി സ്ഥാനപതി വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു

ആന്ധ്രപ്രദേശിലെ നിരവധി പ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്തു വിശാഖപട്ടണം ജില്ലയിലെ പരവാഡ ഗജുവാക പ്രദേശങ്ങളിലാണ് ശക്തമായ മഴ പെയ്തത്